പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ജില്ലയിൽ വ്യാപക പ്രതിഷേധം വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടു

പ്രവർത്തന മികവിനുള്ള ഐ

ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും

ഇ വയനാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ നടപ്പാക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജനറൽ ജീവൻ ബാബു അറിയിച്ചു ഉന്നതതല യോഗം ചേർന്ന ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ കളക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവരോട് ആവശ്യപ്പെട്ടു കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത അദ്ധ്യയന വർഷാരംഭത്തിന് മുമ്പ് സ്കൂൾ പരിസരങ്ങളിലെ അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു രാഹുൽഗാന്ധി കത്ത് വയനാട് ക്സാസ്സ് മുറിയിൽ പാമ്പു കടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സാഹചര്യത്തിൽ വയനാട്ടിലെ പൊതു വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കർമ്മപദ്ധതി ആവിഷ്ക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വയനാട് എം പി രാഹുൽഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു

ഐ ടി വിദ്യാ്ർത്ഥിനിയായിരുന്ന കൊല്ലം സ്വദേശി ഫാത്തിമ ലത്തീഫിന്റെ മര്യ്ക്കത്തിൽ സമഗ്രവും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ കൊല്ലത്ത് നടന്ന മെഗാ അദാലത്തിലാണ് കമ്മീഷന്റെ നിർദേശം

വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും സ്വയംപ്രാപ്തി കൈവരിച്ചതിനുശേഷം മാത്രം വിവാഹം നടത്തണം കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കവേയാണ് പരാമർശം

കൂടത്തായി കൂടത്തായി കൊലപാതക കേസിൽ മുഖ്യപ്രതി ജോളി സഹോദരൻ നോബിൾ സഹോദരി സിസിലിയുടെ ഭർത്താവ് ജോണി എന്നിവരുടെ രഹസ്യമൊഴി ഇന്ന് ശേഖരിക്കും കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാലിലാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് മൊഴി ശേഖരിക്കുന്നത്

കോട്ടയം ജില്ലയിലെ പത്ത് പഞ്ചായത്തുകളെ തരിശുരഹിതമാക്കാനും കൃഷി വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു

കാർഷിക വായ്പ പുനഃക്രമീകരിക്കുന്നതിനും പുതിയ വായ്പയ്ക്കുമായി കർഷകർ അതത് ബാങ്കുകളിലെത്തി അപേക്ഷ നൽകണം

ബിവറേജ് കോർപ്പറേഷൻ മിൽമ തുടങ്ങിയ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് ഉപയോഗിച്ചു കളയുന്ന പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം പരിഗണിച്ചാണ് മന്ത്രിസഭയുടെ തീരുമാനം ലോക കേരള സഭ ജനുവരിയിൽ തിരുവനന്തപുരത്ത് ചേരുന്ന ലോക കേരള സഭയുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും

അഞ്ചുനാട് മേഖലകളിലെത്തുന്ന സഞ്ചാരികൾക്ക് ആഫ്ലാദം പകർന്ന് ഓറഞ്ചിന്റെ വിളവെടുപ്പു തുടങ്ങി

സ്വന്തം നാട്ടിൽ തുടർച്ചയായ പരമ്പര വിജയം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കളിക്കാനിറങ്ങുന്നത്

ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി എന്നിവർ മൽസരം കാണാനെത്തും

സുധീരൻ വാളയാറിൽ സഹോദരിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ്സ് നേതാവ് വി

പോലീസ് അന്വേഷണത്തിലും പ്രോസിക്യൂഷൻ നടപടിയിലും വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ചകൾ ഗവൺമെന്റ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനുള്ള തീരുമാനം പാഴ്വേലയാണെന്ന് ശ്രീ സുധീരൻ കത്തിൽ പറഞ്ഞു മരട് കൊച്ചി മരടിലെ ഫ്ളാറ്റുകൾ സംബന്ധിച്ച കോടതിയലക്ഷ്യ കേസ് സുപ്രീംകോടതി ജനുവരി ആദ്യവാരം പരിഗണിക്കാനായി മാറ്റി

കുറ്റക്ട്യങ്ങളിൽ ഉൾപ്പെട്ട ആരെങ്കിലും എത്തിയാൽ മുഖം തിരിച്ചറിയുന്ന് ക്യാമറയാണ് സ്ഥാപിച്ചിട്ടുള്ളത്

റൺവേ അറ്റകുറ്റപ്പണികൾക്കായി താത്കാലികമായി കൊച്ചി വിമാനത്താവളം അടച്ചിടുന്ന പശ്ചാത്തലത്തിലാണ് ഈ സർവ്വീസ് കോഴിക്കോട്ട് ലഭ്യമാകുന്നത്